എം ഇന്ന് കരിദിനം ആചരിക്കും ചതയ ദിനത്തിലെ കരിദിനാചരണം ഒഴിവാക്കണമെന്ന് ബി ജെ

ആഘോഷം ചടങ്ങുകളിൽ ഒതുക്കും

സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കാണ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിൽ സ്പോർട്സ് ക്വാട്ട നിയമനം നൽകുന്നത് രുമ ഫിറ്റ് ഇന്ത്യ പരിപാടിയിലേക്ക് പ്രശസ്തരും കോർപ്പറേറ്റുകളും കായികതാരങ്ങളും കൂടുതലായി കടന്നുവരണമെന്ന് കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു ആദ്യവർഷം ഫിറ്റ് ഇന്ത്യ പരിപാടിക്ക് ലഭിച്ച ജനപ്രിയത നിലനിർത്തണമെങ്കിൽ കൂടുതൽ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം വാർഷിക ഉപദേശക സമിതി യോഗത്തിൽ അറിയിച്ചു

രുമ ബാങ്ക് വായ്പകളുടെ മൊറട്ടോറിയം കാലയളവിൽ പലിശയും കൂട്ടുപലിശയും ഇൌടാക്കുന്ന നടപടിക്കെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും

വായ്പാ തിരിച്ചടവിന് ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ഇളവ് നൽകുന്ന കാര്യം തീരുമാനിക്കാൻ ബാങ്കുകൾക്ക് അധികാരമുണ്ടെന്ന് കേന്ദ്രം സത്യവാങ്മൂലത്തിൽ അറിയിച്ചു പലിശയിളവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാനാവുമെന്ന് ഗവൺമെന്റും റിസർവ് ബാങ്കും ബാങ്കുകളുടെ അസോസിയേഷനും ആലോചിച്ച് വരികയാണെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു

കോവിഡ് പശ്ചാത്തലത്തിൽ മെയ് മാസം മുതലാണ് കുടിയേറ്റ തൊഴിലാളി ക്ഷേമപദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചത്

രേര കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പുറത്തിറക്കുന്ന കോവിഡ് മാർഗ്ഗ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പൊലീസും ആരോഗ്യവകുപ്പും ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് ജില്ലാ കലക്ടർമാർ ഉറപ്പാക്കണമെന്ന് ചീഫ് സെക്രട്ടറി ബിശ്വാസ് മേത്ത ആവശ്യപ്പെട്ടു കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അധിക നിയന്ത്രണം ആവശ്യമെങ്കിൽ കലക്ടർമാർക്ക് അതിന് അധികാരം നൽകിയിട്ടുണ്ട് സോണുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിജ്ഞാപനം ചെയ്യുന്ന ഇപ്പോഴത്തെ രീതി തുടരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അൺലോക്ക് നാലാംഘട്ട നിയന്ത്രണങ്ങളും മാർഗ്ഗ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച പരാമർശം കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പൊതു ലോക്ഡൌണും മറ്റ് സ്ഥലങ്ങളിൽ ഘട്ടങ്ങളായി ഇളവുകളും നടപ്പാക്കും

സൌദി അറേബ്യ കുവൈറ്റ് ബഹ്റൈൻ ഖത്തർ യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അധിക സർവീസുകൾ ഉണ്ടാവുക

രുമ വെഞ്ഞാറമൂട്ടിൽ രണ്ട് ഡി

എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാനത്ത് കരിദിനാചരണത്തിന് സി

വൈകിട്ട് നാല് മുതൽ ആറുവരെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തും പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എറണാകുളത്തും എ വിജയ രാഘവൻ തൃശൂരിലും ആനത്തലവട്ടം ആനന്ദൻ കെ എൻ ബാലഗോപാൽ എന്നിവർ തിരുവനന്തപുരത്തും പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കും കോഴിക്കോട്ട് എളമരം കരീം പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകും

ഇതിൽ അക്രമികളെ രക്ഷപ്പെടാൻ സഹായിച്ച സ്ത്രീയും ഉൾപ്പെടും

പിടിയിലായവർ കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് പൊലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട്

രുമ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ദിനത്തെ കരിദിനാചരണത്തിൽ നിന്ന് സി

എം പിന്മാറണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ചതയ ദിനത്തെ കരിദിനമാക്കുന്ന സി

എമ്മിന്റെ നീക്കം ലക്ഷക്കണക്കിന് ഗുരു വിശ്വാസികൾക്ക് നേരെ നടത്തുന്ന വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ഞായറാഴ്ചയുണ്ടായ സംഭവത്തിൽ ഇന്ന് കരിദിനം ആചരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു രേര ലഡാക്കിലെ ചുമാർ മേഖലയിൽ ചൈനീസ് സൈന്യം അതിക്രമിച്ച് കയറാൻ ശ്രമം നടത്തിയെന്ന റിപ്പോർട്ടുകൾ ശരിയല്ലെന്ന് കരസേനാ കേന്ദ്രങ്ങൾ അറിയിച്ചു ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി അവരുടെ അതിർത്തിയിൽ സമാധാനകാലത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ സൈനിക പ്രകോപനമായി ഒരു വാർത്താ ഏജൻസി ട്വീറ്റ് ചെയ്യുകയായിരുന്നുവെന്ന് കരസേന വ്യക്തമാക്കി

കോവിഡ് സാഹചര്യത്തിൽ പതിവ് ആഘോഷങ്ങൾ ഒഴിവാക്കി പ്രത്യേക പൂജകളിലും സമൂഹ പ്രാർത്ഥനയിലും മാത്രമായി ജയന്തി ആഘോഷം ഒതുക്കും ഘോഷയാത്രയും അന്നദാനമടക്കം ചടങ്ങുകളും ഉണ്ടാവില്ല ഗുരുദേവന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിൽ രാവിലെയാണ് പ്രത്യേക പൂജകളും സമൂഹ പ്രാർത്ഥനയും നടക്കുന്നത്

സ്വാമി സൂക്ഷ്മാനന്ദ അനുഗ്രഹ പ്രഭാഷണവും ജയന്തി സന്ദേശവും നൽകും ശിവഗിരിയിൽ പുലർച്ചെ പ്രത്യേക ഗുരുപൂജ നടത്തി അല്പസമയത്തിനകം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ ധർമ്മ പതാക ഉയർത്തും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ രാവിലെ ക്ഷേത്രയോഗം പ്രസിഡന്റ് പി വി ചന്ദ്രൻ ചതയ ദിന ജ്യോതി തെളിയിക്കും പ്രത്യേക പൂജകളും സംഘടിപ്പിച്ചിട്ടുണ്ട് രുമ കേരള കോൺഗ്രസ് എം ചെയർമാനായി ജോസ്

മാണിക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നിലനിൽക്കുന്നതായി വർക്കിംഗ് ചെയർമാൻ പി

ജോസഫ് അറിയിച്ചു

മാണി ചെയർമാനാണെന്ന് പറയുന്നത് കോടതിയലക്ഷ്യമാണെന്നും ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു

മാണിയെ ചെയർമാനായി തെരഞ്ഞെടുത്തത് നിയമ വിരുദ്ധമാണെന്ന് മൂന്ന് കോടതികൾ വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചില്ലെന്നും പി

ജോസഫ് വിലയിരുത്തി രുമ കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി യു രാജീവനെയും തൃശൂർ ഡി

സി പ്രസിഡന്റായി എം

കോഴിക്കോട് ഡി സി സി പ്രസിഡന്റായിരുന്ന ടി സിദ്ദിഖിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിയമിച്ചതിനെത്തുടർന്നാണ് പുതിയ നിയമനം

എൻ പ്രതാപൻ ലോക്സഭാംഗം ആയതോടെയാണ് വിൻസെന്റിനെ ഡി സി സി പ്രസിഡന്റാക്കിയത് രുമ കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വലിയ വിമാനങ്ങളുടെ സർവ്വീസ് പുഃനരാരംഭിക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്കും കേന്ദ്ര വ്യോമയാന മന്ത്രിക്കും മുന്നിൽ ഹജ്ജ് കമ്മിറ്റി ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞ മാസം ഏഴിനുണ്ടായ വിമാനാപകടത്തിന്റെ കാരണം വിമാനത്താവളത്തിന്റെയും വ്യക്തമാകുന്നതിന് മുമ്പ് റൺവേയുടെയും കുഴപ്പമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നതായും ഹജ്ജ് കമ്മിറ്റി ആരോപിച്ചു രുമ ഇന്ന് ലോക നാളികേര ദിനം ജക്കാർത്ത ആസ്ഥാനമായ അന്തർ ദേശീയ നാളികേര കമ്മ്യൂണിറ്റിയുടെ സ്ഥാപക ദിനമാണ് ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പിന്റെയും കേരള കാർഷിക സർവ്വകലാശാലയുടെയും ആഭിമുഖ്യത്തിൽ നടത്താനിരുന്ന ദിനാചരണ പരിപാടികൾ മാറ്റിവെച്ചു മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ നിര്യാണത്തെത്തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാലാണ് ദിനാചരണം മാറ്റിയത്

തലക്കോത്ത് ഉണ്ണികൃഷ്ണൻ ആണ് മരിച്ചത്

പെരിന്തട്ടയിലെ തൈക്കൂട്ടത്തിൽ ടെസ്സിയാണ് മരിച്ചത്